ലോക്ഡൌൺ മൂലം മാറ്റിവച്ച എസ് എസ് എൽ

അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും സർക്കാരിന് നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു കേരളം വിവിധ മേഖലകളിൽ ആർജിച്ച പുരോഗതിയാണ് കോവിഡ് പ്രതിരോധത്തിൽ തുണയായതെന്നും അദ്ദേഹം പറഞ്ഞു

ഡി

സർക്കാരിന്റെ നാലാം വർഷത്തേയും പ്രോഗ്ഗസ് റിപ്പോർട്ട് ദിവസങ്ങൾക്കകാ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ദുബായിൽ നിന്ന് എത്തിയ കൽപ്പറ്റ സ്വദേശിനി ആമിനയാണ് ഇന്നലെ മരിച്ചത്

ഇന്നലെ നാലു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

വിഭാഗം പ്രസവ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയ്ക്ക് കൊവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്ന് ഇന്നലെ ത്യാത്കാലികമായി അടച്ചിട്ട കൊല്ലം ഗവൺമെൻറ് വിക്ടോറിയ ആശ്യുപ്പീതിയിൽ ഒ

വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു

ഇതിനെത്തുടർന്നാണ് വെഞ്ഞാറമൂട് പൊലീസ് സ്റ്റേഷൻ നെടുമങ്ങാട് കോടതി ജില്ലാ ജയിൽ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരെ നിരീക്ഷണത്തിലാക്കിയത്

ഹയർസെക്കന്ററി വൊക്കേഷണൽ ഹയർ സെക്കന്ററി പരീക്ഷകൾ നാളെ പുനരാരംഭിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാനുള്ള അവസരം ഉറപ്പാക്കണമെന്ന് വിദ്യാഭ്യാസവകുപ്പ് അധ്യാപകർക്ക് നിർദേശം നൽകിയിട്ടുണ്ട്

എസ്

കേരളത്തിൽ നിന്നുള്ള എല്ലാ എം

എ മാരേയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്

മറ്റന്നാൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ സർവകക്ഷിയോഗവും വിളിച്ചിട്ടുണ്ട്

കേര്ളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ഇന്നലെയായിരുന്നു ചെടിയ് പെരുന്നാൾ

വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആകാശവാണി ലേഖകൻ എൻ

ജയചന്ദ്രൻ

വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് സംഘടിപ്പിച്ചത് മന്ത്രി എം

ഡീൻ കുര്യാക്കോസ് എം പി യും റോഷി അഗസ്റ്റിൻ എം

വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

പാമ്പിനെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക്ക് ജാർ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു ക്രൈംബ്രാഞ്ച് ഡി